തോമസ് ഐസക്കിന് കോവിഡ് സ്ഥിരീകരിച്ചു

ത താമരശ്ശേരി രൂപതാ മുൻ ബിഷപ്പ് മാർ പോൾ ചിറ്റിലപ്പള്ളി കാലം ചെയ്തു സംസ്കാരം നാളെ

വാർത്തകൾ വിശദമായി കോവിഡ് വ്യാപനത്തെത്തുടർന്ന് രാജ്യത്തെ നിർത്തി വെച്ചിരുന്ന മെട്രോ സർവ്വീസുകൾ ഇന്ന് പുനഃരാരംഭിക്കും

ഇതിന് പുറമെ കണ്ടെയ്ൻമെന്റ് സ്റ്റേഷനുകൾ സോണുകളിൽ നിന്ന് എത്തിച്ചേരുന്ന പ്രവേശന കവാടങ്ങളും തുറക്കില്ല സ്റ്റേഷനുകളും ട്രെയിനുകളും അണുമുക്തമാക്കാൻ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആകാശവാണി കൊച്ചി ലേഖകൻ എൻ സി ജയചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട്

ഇന്നലെ നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് അദ്ദേഹം കോവിഡ് പോസിറ്റീവാണെന്ന് കണ്ടെത്തിയത് അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മന്ത്രിയുടെ പഴ്സണൽ സ്റ്റാഫിൽ ചിലരെയും പരിശോധനാ വിധേയരാക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിയോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പൊളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള തുടങ്ങിയവർ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു രുമ കൊല്ലം ജില്ലയിലെ വൻകിട സ്വകാര്യ സഹകരണ ആശുപത്രികളിൽ അടിയന്തര ചികിത്സക്കെത്തുന്ന രോഗികളെ അവരുടെ കോവിഡ് പരിശോധനാ ഫലം വരുന്നതുവരെ ചികിത്സ നൽകാൻ താൽക്കാലിക ഐ

ഉടൻ ചികിത്സ ആവശ്യമായ സന്ദർഭങ്ങളിൽ പോലും കോവിഡ് പരിശോധന നടത്തിയ ശേഷം മാത്രം ചികിത്സ നൽകിയ സംഭവങ്ങൾ ശ്രദ്ധയിൽപെട്ടതിനെത്തുടർന്നാണ് നിർദ്ദേശം രുമ കോവിഡ് നിയന്ത്രണത്തെ തുടർന്ന് മാർച്ചിൽ അടച്ച നാടുകാണി ചുരം ഇന്നലെ തുറന്നു നൂറോളം വാഹനത്തിൽ അതിർത്തി കടന്നെത്തി കോവിഡ് വിവരങ്ങൾ ക്രോഡീകരിക്കാൻ ജാഗ്രത പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർക്കാണ് അതിർത്തി കടക്കാൻ അവസരം

രുമ ദേശീയ വിദ്യാഭ്യാസ നയം ചർച്ച ചെയ്യാൻ ഇന്ന് ന്യൂഡൽഹിയിൽ ഗവർണർമാരുടെ സമ്മേളനം ചേരും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും വിദ്യാഭ്യാസ മന്ത്രാലയമാണ് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്

ഇന്ത്യ കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസ സമ്പ്രദായം രാജ്യത്തെ ആഗോള ശക്തിയാക്കാൻ ലക്ഷ്യമിട്ടാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് രമേ കേരളാ കോൺഗ്രസിലെ പി ജെ ജോസഫ് മോൻസ് ജോസഫ് എന്നിവരെ അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർട്ടി ചീഫ് വിപ്പ് റോഷി അഗസ്റ്റിൻ ഇന്ന് സ്പീക്കർക്ക് കത്ത് നൽകും

മാണി കോട്ടയത്ത് അറിയിച്ചു

കല്യാൺ രൂപതയുടെ ആദ്യ ബിഷപ്പായിരുന്ന അദ്ദേഹം പിന്നീട് തൃശൂർ അതിരൂപതയുടെ വികാരി ജനറലായും പ്രവർത്തിച്ചു ഭൌതികശരീരം രാവിലെ താമരശ്ശേരി ബിഷപ് ഹൌസിലെ പ്രാർത്ഥനകൾക്ക് ശേഷം കത്തീഡ്രൽ പള്ളിയിൽ പൊതുദർശനത്തിന് വെയ്ക്കും

മേജർ ആർച്ച് ബിഷപ് മാർ ജോർജ്ജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സംസ്കാര ശുശ്രൂഷകൾ നാളെ രാവിലെ ആരംഭിക്കും ബിഷപ്പ് മാർ പോൾ ചിറ്റിലപ്പള്ളിയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം അറിയിച്ചു ചില വിഷയങ്ങളിൽ ബിഷപ്പിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹവുമായി ഊഷ്മളമായ വ്യക്തിബന്ധം നിലനിർത്താൻ കഴിഞ്ഞതായി അനുശോചന സന്ദേശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു

സുരേന്ദ്രൻ മന്ത്രി ടി പി രാമകൃഷ്ണൻ എം പിമാരായ എം കെ രാഘവൻ ബിനോയ് വിശ്വം കെ

രാജീവൻ കോഴിക്കോട് രൂപതാ ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ ഡോ ഹുസൈൻ മടവൂർ തുടങ്ങിയവർ അുശോചിച്ചു രുദ കാസർകോട് എടനീർ മഠാധിപതി കേശവാനന്ദ ഭാരതിയുടെ പിൻഗാമിയായി സ്വാമിയുടെ സഹോദരീ പുത്രൻ ജയറാം മഞ്ചത്തായെ നിശ്ചയിച്ചു

രുമ സംസ്ഥാനത്തെ ഹയർ സെക്കണ്ടറി സ്കൂൾ കെമിസ്ട്രി ലാബുകൾ ഇനി മുതൽ ജലഗുണനിലവാര പരിശോധനാ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കും ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ അഞ്ചരക്കണ്ടി ഹയർ സെക്കണ്ടറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നടത്തും

എൽ എമാരുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്ന് തുക നൽകിയിട്ടുണ്ട് വിശദാംശങ്ങൾ നൽകുന്നത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ

മൂന്നുപേർ രക്ഷപ്പെട്ടു കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് എറണാകുളം ജില്ലയിലെ തീരമേഖലയിൽ അപകടത്തിൽപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ആറ് മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിലുള്ളത് കടലിൽ പല ഭാഗത്തും ബോട്ടുകൾ കുടുങ്ങി കിടക്കുന്നതായി തീരദേശ പൊലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് രുമ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ വ്യാഴാഴ്ച വരെ സംസ്ഥാനത്തെ ചില ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നാളെയും കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് മലപ്പുറം ജില്ലകളിൽ മറ്റന്നാളും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്

ഒരടി കൂടി വെള്ളം ഉയർന്നാൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കും രുമ ഷോളയാർ ഡാമിലെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയോട് അടുക്കുന്നതിനാൽ ആവശ്യമെങ്കിൽ അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കി വിടാൻ തൃശൂർ ജില്ലാ കലക്ടർ അനുമതി നൽകി

കരുനാഗപ്പള്ളി താലൂക്കിൽ ഒരു വീട് പൂർണ്ണമായും രണ്ട് വീടുകൾ ഭാഗികമായും തകർന്നു